പേർ മരിച്ചു

കാലാവസ്ഥാ കേന്ദ്രം കേരളത്തിൽ ശക്തമായകാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യത

വൈകിട്ട് നടക്കുന്ന കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുട്ടിമുന്നണികളും

രാഹുൽ ഗാന്ധി ഇന്ന് റായ്ബറേലിയിലും അമേത്തിയിലുമാണ്

ഗോത്രവർഗ്ഗ കർഷകർക്കും ജലസേചനം മത്സ്യബന്ധനം പുഷ്പ കൃഷി എന്നിവയ്ക്കുമായി സമഗ്രമായ പദ്ധതികളുമായാണ് തന്റെ പാർട്ടി മുന്നോട്ടു വരുന്നതെന്ന് മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെ ശ്രീ

ന്യായ്പദ്ധതിയ്ക്ക് വേണ്ടി ആരും പണം ചിലവഴിക്കേണ്ടി വരില്ലെന്ന് ശ്രീ

കോൺഗ്രസിലെ അജയ്റായ് സമാജ്വാദി പാർട്ടിയിൽ നിന്നും ശാലിനിയാദവ് എന്നിവരും വാരാണസിയിൽ മത്സരരംഗത്തുണ്ട്

റഫാൽ ഇടപാടിലും കടം എഴുതി തള്ളിയതിലും കെട്ടിച്ചമച്ച പ്രസ്താവനകളാണ് രാഹുൽ ഉന്നയിക്കുന്നത്

ജെ പി നേടിയ ഭൂരിപക്ഷം ഇക്കുറി ആവർത്തിക്കുമെന്നും ശ്രീ ജയ്റ്റ്ലി ഫേസ്ബുക്കിൽ കുറിച്ചു

യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന പിക്അപ് വാനാണ് അപകടത്തിൽപെട്ടത്

ഇന്നലെ രാത്രി കാറ്റുക്ക്ൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്

ബി ഐ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു

ആക്രമണത്തിനുശേഷം ഭീകരർ രക്ഷപ്പെട്ടെന്നു സുരക്ഷാവൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ അൽ ഉമർ മുജ്ജാഹുദീൻ എന്ന ഭീകരസംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു

സാമ്പത്തിക കാരണങ്ങളാൽ നടപ്പടികൾ ്വൈകാനിടയാകരുതെന്നും കാനഡയിലെ ഇന്ത്യൻ സ്ഥാനപ്പതി പ്ലികാസ് സ്വരൂപിന് ശ്രീമതി സ്വരാജ് നിർദ്ദേശം നൽകി ഉത്തർപ്രദേശിലെ കനൌജ് സ്വദേശിയാണ് മരിച്ച രാം നിവാസ് മിശ്രീ ഇ്ദ്ദേഹത്തിന്റെ മൂത്തമകൻ ഗുരുതരാവസ്ഥയിൽ ആശ്ച്പത്രിയിലാണ്

ഇതേ തുടർന്ന് ഫാനി ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാകേന്ദ്രം വക്താവ് ഡോ

കൂടുതൽ വിവരങ്ങളുമായി സീനാ ആന്റണി

ഫെനി കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ മൂന്ന്ദിവസം ശക്തമായകാറ്റിനും വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ടസ്ഥലങ്ങളിൽ കനത്തമഴയ്ക്കും സാധ്യതയുണ്ട്

തെക്കു കിഴക്കൻ ശ്രീലങ്കയോടു ചേർന്ന് കടലിൽ രൂപപ്പെട്ട ന്യൂനമർദം തീവ്ര ന്യൂനമർദ്ധ്യിക്കഴിഞ്ഞു ഇന്നു വൈകിട്ടോടെ ചുഴലിക്കാറ്റാകും

ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനു പോയവർ നാളെയ്ക്കകം തിരിച്ചെത്തണമെന്നു കർശന നിർദേശമുണ്ട് ചുഴലിക്കാറ്റായി രൂപപ്പെട്ടാൽ ഇതിനെ ഫനി എന്ന് വിളിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

കടൽഭിത്തിയില്ലാത്ത പ്രദേശങ്ങൾ ഭാഗികമായി കടലെടുത്തിട്ടുമുണ്ട്

ജി

സ്ട്രഭവത്തെക്കുറിച്ച് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയ കേസെടുത്തു

മരിച്ചവരിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ നിരീക്ഷകർ അറിയിച്ചു

സിറിയയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത്

കഴിഞ്ഞ മാസം അറസ്റ്റിലായ നിരവ് മോദി നിലവിൽ ലണ്ടനിൽ ജയിലിലാണ് ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് ഇയാൾ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്

രണ്ടു പേർക്ക് പർിക്കേറ്റു കഞ്ചിക്കോട് കണ്ണോട് സ്വദേശി കെ

വാച്ചർമാരായ വിശ്വനാഥൻ ഗിരീഷ് എന്നിവർക്കാണ് പരി്ക്ക്കേറ്റത് രണ്ടു ദിവസമായി വേലഞ്ചേരി പ്രദേശത്ത് വിഹരിക്കുന്നു കാട്ടാനകളെ കാട്കയറ്റുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്

തെർമോ ഫ്ളാസ്കിന്റെ കവറിങ്ങിനുള്ളിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്

ലോകചാമ്പ്യൻ വാങ് ലിനയെ വീഴ്ത്തിയായിരുന്നു പൂജാ റാണി ഇന്ത്യക്ക് രണ്ടാം സ്വർണം സമ്മാനിച്ചത്